മുൻകരുതൽ ശക്തമാക്കി നാളെ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് ഇടുക്കി ചെറുതോണി ഡാം ഇന്ന് തുറക്കും

ഐഎസ്എൽ അഞ്ചാം സീസണിലെ ആദ്യ ഹോം മാച്ചിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സി മത്സരം സമനി ലയിൽ ൾ ൽ ൾ തെക്ക് കിഴക്കൻ അറബിക്കടൽ മേഖലയിൽ രൂപപ്പെട്ട ന്യൂന മർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങി ചുഴലികൊടുങ്കാറ്റായി ഒമാൻ തീരത്തേക്ക് പോകാൻ സാധ്യ തയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് മുന്നറിയിപ്പ് നൽകി ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നുമുതൽ കാറ്റും ശക്തമായ മഴയും ഉണ്ടായേക്കും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദേശം തുടരും നാളെ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഇടുക്കി പത്തനം തിട്ട വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു ണ്ട്

മീൻപിടിത്തക്കാർ ഇനിയൊരുറിയിപ്പുണ്ടാകുന്നതു വരെ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം ആവശ്യപ്പെട്ടു ഇന്നുമുതൽ മഴ കനക്കുമെന്ന് അധികൃതർ അറിയിച്ചു വിവിധ ജില്ല കളിൽ മുൻകരുതലായി ഡാമുകളുടെ ഷട്ടർ തുറന്നിട്ടുണ്ട്

ചെറുതോണി പുഴയുടെയും പെരിയാറിന്റെയും കരകളിൽ താമസി ക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇടുക്കി ജില്ലാ ഭരണ കൂടം അറിയിച്ചു ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പാംബ്ല ലോവർ പെരിയാർ മുതിരപ്പുഴ കല്ലാർക്കുട്ടി ഡാമുകളും ഇന്നു തുറ ക്കും

കനത്ത മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ല യിലെ കക്കി ആനത്തോട് ഡാമിന്റെ നാല് ഷട്ടറുകളും മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നു

ശക്തമായ മഴ മുന്നറിയിപ്പും അണക്കെട്ടുകൾ തുറക്കലും ഉണ്ടാ യതോടെ ഇനിയും വെള്ളപ്പൊക്കമുണ്ടായാൽ കുടുങ്ങാതിരിക്കാൻ കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും ജനങ്ങൾ തയാറെടുപ്പുകൾ തുടങ്ങി

ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂം തുറന്നു

പാലക്കാട് ജില്ലയിൽ മഴ ശക്തമായില്ലെങ്കിലും ജാഗ്രതാ നിർദേ ശത്തിന്റെ അടിസ്ഥാനത്തിൽ വാളയാർ മീങ്കര ചുള്ളിയാർ അണ ക്കെട്ടുകൾ തുറന്നു മലമ്പുഴ പോത്തുണ്ടി മംഗലം ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി കൽപ്പാത്തി ഗായത്രി ഭാരതപ്പുഴക ളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി

മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു കേരളാ രജിസ്ട്രേഷ നോടു കൂടിയ ബോട്ടുകൾ ഒമാൻ തീരത്തേക്ക് പോയിട്ടില്ലെങ്കിലും തമിഴ്നാട് ബോട്ടുകളിലും കേരളത്തിലെ തൊഴിലാളികൾ ഉണ്ടാകാൻ സാധൃതയുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു അറബിക ടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്നാണ് കരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധി നട പ്പാക്കുന്നതിന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരോട് ചർച്ച നടത്തി ആവ ശ്യമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പ്രായം പരിഗണി ക്കാതെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി ഉത്തരവിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി സങ്കുചിത രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസും ബിജെപിയും ശ്രമിക്കുകയാണെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി ഇത് ഭര

ശബരിമലയിൽ ഭക്തരായ സ്ത്രീകൾക്കും തുല്യാവകാശം വേണ മെന്ന നിലപാടാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സത്യവാ ങ്മൂലത്തിലൂടെ നൽകിയത് എന്നാൽ സിപിഐഎം നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണമോ ചട്ടഭേദഗതിയോ ഗവൺമെന്റ നടത്തിയിട്ടില്ല സ്ത്രീകളെ ശബരിമലയിലേക്ക് കൊണ്ടുപോവുക എന്നത് സിപിഐഎമ്മിന്റെ പരിപാടിയല്ലെന്നും സെക്രട്ടേറിയറ്റ് വൃക്ത മാക്കി ശബരിമല സൂപ്രീം കോടതി വിധിയിൽ പ്രധാന പ്രതി കേരളാ ഗവൺമെന്റാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ

വേണുഗോപാൽ കുറ്റപ്പെടുത്തി കോടതി വിധി വരുംവരായ്ക കൾ പരിശോധിച്ചാണോ എന്ന സംശയം ഉയരുന്നതായി അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു വിശ്വാസങ്ങളെ മാനിക്കുന്നതാകണം കോടതി വിധികൾ വിശ്വാസിയുടെ കാര്യത്തിൽ അവിശ്വാസികൾ തീരുമാനം എടുക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേന്ദ്രത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കു കയാണ് വേണ്ടതെന്നും വേണുഗോപാൽ നിർദേശിച്ചു ശ്രീനാരായണഗുരു തീർത്ഥാടന സർക്യൂട്ടിന് കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ അനുമതി നൽകിയതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കോർത്തിണക്കി യാണ് സർക്യൂട്ട് നടപ്പാക്കുന്നത് ചെമ്പഴന്തി അരുവിപ്പുറം തോന്നക്കൽ കുമാരനാശാൻ സ്മാരകം കായിക്കര ശിവഗിരി എന്നി വയെല്ലാം സർക്യൂട്ടിന്റെ പരിധിയിൽ ഉൾപ്പെടും കാസർകോട് സബ് കോടതികളുടെ ഒരു വർഷം നീണ്ട വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്യും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ് അധൃക്ഷനായിരിക്കും മന്ത്രി ഇ ച ന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും

സദാശിവം ഉദ്ഘാടനം ചെയ്യും

കരുണാകരൻ എം പി ചടങ്ങിൽ അധൃക്ഷനായിരിക്കും ഇന്ത്യാ രാജ്യാന്തര ശാസ്ത്രോത്സവം ലക്നൌവിൽ തുടങ്ങി കേന്ദ്രമന്ത്രി ഡോ ഹർഷവർധൻ നാലു ദിവസത്തെ ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശാസ്ത്രോത്സവം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കൊച്ചിയിൽ ഐഎസ്എൽ അഞ്ചാം സീസണിലെ ആദ്യ ഹോം മാച്ചിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയോട് സമ നില പാലിച്ചു ഇരുടീമുകളും ഓരോ ഗോളടിച്ചു ഒരു വിജയവും ഒരു സമനിലയും ഉൾപ്പെടെ ഇതോടെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് നാലു പോയിന്റായി

ഇന്ന് ബെംഗളൂരുവിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും പായ്വഞ്ചി യാത്രക്കിടെ കടൽക്ഷോഭത്തിൽ പരിക്കേറ്റ മലയാളി കമാന്റർ അഭിലാഷ് ടോമിയെ ഇന്ന് വൈകീട്ടോടെ വിശാഖപ്പട്ടണത്ത് എത്തിക്കും നാവിക സേനാ കപ്പൽ ഐഎൻഎസ് സത്പുരയിലാണ് ആംസ്റ്റർഡാമിൽ നിന്ന് ടോമിയെ കൊണ്ടുവരുന്നത് ഹയർ സെക്കൻറി പാഠപുസ്തകളുടെ മലയാള പരിഭാഷ തിരു വനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു

ഈ വിഷയങ്ങളിലെ പാഠപുസ്തകങ്ങൾ മലയാളത്തിലും ലഭ്യ മാക്കണമെന്ന് ഔദ്യോഗിക ഭാഷാ ഉന്നതതല സമിതി ആവശ്യപ്പെട്ടി രുന്നു ശേഷിക്കുന്ന പാഠപുസ്തകങ്ങളുടെ പരിഭാഷ അടുത്ത അധ്യയന വർഷത്തോടെ പൂർത്തിയാക്കും മനുഷ്യ വനൃജീവി സംഘർഷം കുറക്കുന്നതിന് വനംവകുപ്പ് കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജു തിരുവനന്തപുരത്ത്

വന്യജീവി വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

കോഴിക്കോട്ട് പി

സ്വാമി അനുസ്മരണ സമ്മേളനവും അവാർഡ്ദാനവും ഇന്ന് നടക്കും ടാഗോർ സെന്റിനറി ഹാളിൽ അനു സ്മരണ സമ്മേളനം മന്ത്രി ടി

ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ കെ

വേണു ഗോപാൽ ബിനോയ് വിശ്വം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുക്കും കോഴിക്കോട് ജില്ലയിലെ നന്മണ്ട സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഇന്ന് മന്ത്രി ട്ടി

രാമകൃഷ്ണൻ ഉദ്ഘാ ടനം ചെയ്യും മന്ത്രി എ

ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരി ക്കും

കേരളാ പൊലീസ് ജി ടെക് ഐടി മിഷൻ എന്നിവയുടെ പിന്തുണയോടെ സൊസൈറ്റി ഫോർ ദി പൊലീസിങ്ങ് ഓഫ് സൈബർ സ്പെയ്സും ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് ഓർഗനൈസേഷനും സംയു ക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

സന്ദർശകർക്ക് തുറന്നുകൊടുത്ത കണ്ണൂർ വിമാനത്താവളം കാണാൻ ജനത്തിരക്കേറുന്നു

ആകാശവാണി ദേശീയ സംഗീത സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് വൈകീട്ട് തൃശൂർ റീജിയണൽ തിയ്യേറ്ററിൽ വി രമേശ് വി

തൃശൂർ നിലയത്തിന് കീഴിൽ ആദ്യമായാണ് സംഗീതസമ്മേളനം സംഘടിപ്പിക്കുന്നത്

ഗവൺമെന്റ് ഹയർ സെക്കൻറി അധ്യാപകരുടെ സ്ഥലമാറ്റത്തിന് വ്യക്തമായ മാനദണ്ഡം നിശ്ചയിക്കാൻ പൊതു വിദ്യാഭ്യാസ സെക്ര ട്ടറി അധ്യക്ഷനായി കമ്മറ്റി രൂപീകരിച്ചു മുൻഗണനാ അനുകമ്പാ സ്ഥലമാറ്റം പൊതു സ്ഥലമാറ്റം എന്നിവ സംബന്ധിച്ച് മൂന്ന് മാസ ത്തിനകം കമ്മറ്റി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്